ജനറൽ ബിപിൻ റാവത്ത് രാജ്യത്തെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയി ചുമതലയേറ്റു

ബി ഐ സമർപ്പിച്ച നാലാം തുടരന്വേഷണ റിപ്പോർട്ടും കോടതി തള്ളി ്ഥ ശിവഗിരി തീർത്ഥാടനം ഇന്ന് സമാപിക്കും മന്നം ജയന്തി ആഘോങ്ങൾക്ക് പെരുന്നയിൽ തുടക്കമായി സംസ്ഥാനത്ത് റേഷൻകാർഡില്ലാത്ത പാവപ്പെട്ട വർക്ക് കാർഡ് ലഭ്യമാക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ വർഷം ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളിൽ പ്രധാനമായി ഇതിനെ കാണുന്നുവെന്നും സാങ്കേതിക കാരണങ്ങൾ റേഷൻ കാർഡ് നൽകുന്നതിന് തടസ്സമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റ് ഈ വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ വിശദീകരിക്കാൻ വിളിച്ചുചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നുമുഖ്യമന്ത്രി

മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഉദ്യോഗസംവരണം ഏർപ്പെടുത്തുന്നതിന് മാന ദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് കെ ശ്രീധരൻനാ യർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശിപാർശകൾ മന്ത്രിസഭായോഗം അംഗീകരിച്ചു നിയമവകുപ്പ് നിർദേശിച്ച ഭേദഗതികളോടെയാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം ശിപാർശ അംഗീകരിച്ചത് നിലവിലെ സംവരണത്തിന് അർഹതയില്ലാത്തവരും കൂടും ബവാർഷിക വരുമാനം നാല് ലക്ഷം രൂപയിൽ കവിയാത്തവരു മായ എല്ലാവർക്കും സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കും

സേനാംഗങ്ങൾ രാഷ്ട്രീ യത്തിൽ നിന്ന് പൂർണമായും വിട്ടു നിൽക്കണ മെന്നും ഗവൺമെന്റിന്റെ നിർദേശങ്ങൾക്കനു സരിച്ച് പ്രവർത്തിക്കണ മെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് സേനകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഒരു ടീമെന്ന നിലയിലായിരിക്കും മൂന്ന് സേനകളുടെയും പ്രവർത്ത നമെന്നും ജനറൽ ബിപിൻ റാവത്ത് അറിയിച്ചു മൂന്ന് സേനാ വിഭാഗങ്ങളുടെയും ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച ശേഷമാണ് ജനറൽ ബിപിൻ റാവത്ത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി ചുമതലയേറ്റത് കരസേനാമേധാവി മനോജ് മുകുന്ദ് നരവനെ വ്യോമസേനാ രാകേഷ് കുമാർ സിംഗ് മേനാവി ഭധൌരിയ നാവികസേനാ മേധാവി കരംബീർ സിംഗ് എന്നിവരും മുതിർന്ന സൈനിക ഓഫീസർമാരും ചടങ്ങിൽ പങ്കെടുത്തു കരസേന മേധാവി സ്ഥാനത്ത് മൂന്നുവർഷത്തെ കാലാവധി പൂർത്തിയാക്കി ഇന്നലെയാണ് അദ്ദേഹം വിരമിച്ചത് ഏത് സുരക്ഷാ ഭീഷണിയും നേരിടാൻ സൈന്യം സജ്ജമാ ണെന്ന് പുതിയ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മനോജ് മുകുന്ദ് നരവനെ വ്യക്തമാക്കി ചൈനീസ് അതിർത്തിയിൽ രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹ പറഞ്ഞു കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷം ആദ്യ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുക യായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ഏത് അപകട സാഹചര്യവും നേരിടാൻ സൈന്യ ത്തിന് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തെ ആധുനീ കരിക്കുന്നതിന് മുന്തിയ പരിഗണന നൽകുമെന്ന് കരസേനാ മേധാവി അറിയിച്ചു പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡി

പ്രതിരോധ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഡി

ഒ മികച്ച സംഭാവനയാണ് നൽകിയതെന്ന് അദ്ദേഹം ടിറ്ററിൽ അറിയിച്ചു പ്രവാസി മലയാളികളെ ഒന്നിപ്പിക്കുന്ന ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനത്തിന് വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാ കും കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനാകും ആശ ശരത്തി ന്റെയും സംഘത്തിന്റെയും മുദ്രഗാന നൃത്താവിഷ്ക്കാരത്തോടെ യാണ് സമ്മേളനം തുടങ്ങുന്നത് നാളെ രാവിലെ നിയമസഭാ മന്ദി രത്തിലെ ശങ്കര നാരായണൻ തമ്പി ഹാളിൽ പ്രതിനിധി സമ്മേ ളനം ആരംഭിക്കും സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പങ്കെടുക്കും

ചന്ദ്രയാൻ രണ്ടിൽ നിന്ന് നേടിയ അനുഭവ സമ്പത്തും അതിനായി ഒരുക്കിയ അടിസ്ഥാന സൌകര്യങ്ങളുമാണ് അടുത്ത ദൌതൃത്തിന്റെ ചെലവ് കുറയ്ക്കു ന്നതെന്ന് ജിതേന്ദ്രപ്രസാദ് അറിയിച്ചു ജമ്മു ക ശ് മീരിലെ രജൌരി നൌഷേര സെക്ടറിൽ നുഴഞ്ഞുകയറ്റക്കാരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ജവാന്മാർക്ക് വീരമൃത്യു ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടെയാണ് സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായത്

സംസ്ഥാനത്ത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഏർപ്പെടുത്തിയ നിരോധനം നിലവിൽ വന്നു

കിളിരൂർ പീഡന ക്കേസിലെ പ്രതിയായ ലതാ നായരാണ് കവിയൂർ കേസിലെ ഏകപ്രതി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അൽപ്പസമയത്തി നകം ഇടമലക്കുടി സന്ദർശിക്കും

രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഇടമലക്കുടിയിൽ നിന്നും മടങ്ങുക

സംഘടന എന്ന തീർത്ഥാടന ലക്ഷ്യത്തെ ആസ്പദമാക്കിയുള്ള സമ്മേളനം മന്ത്രി ജി

മന്ത്രി പി

പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു

സമാപന സമ്മേളനം വൈകിട്ട് കേന്ദ്ര മന്ത്രി ആർ

സിങ്ങ് ഉദ്ഘാടനം ചെയ്യും

നാളെ മന്നം ജയന്തി സമ്മേളനം ചങ്ങനാശേരി ആർച്ച്ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്യും ഭൂവനേശ്വറിൽ ദേശീയ സീനിയർ വോളിബോൾ സെമിഫൈ നലിൽ കേരള പുരുഷ ടീം ഇന്ന് റെയിൽവേസിനെയും വനിത കൾ മഹാരാഷ്ട്രയെയും നേരിടും പുരുഷന്മാർ കാർട്ടറിൽ രാജ സ്ഥാനെയും വനിതകൾ ഹിമാചലിനെയും തോൽപ്പിച്ചാണ് സെമി യിലെത്തിയത് കോഴിക്കോട് കൂടത്തായ് കൊലപാതക പരമ്പര കേസിലെ ആദ്യകുറ്റപത്രം ഇന്ന് താമരശ്ശേരി കോടതിയിൽ സമർപ്പിക്കും കേസിലെ പ്രധാന പ്രതി ജോളിയുടെ ആദ്യഭർത്താവ് പൊന്നാമറ്റും റോയ് തോമസ് സയനൈഡ് ഉള്ളിൽ ചെന്ന് മരിച്ചു കേസിലാണ് കുറ്റപത്രം ശാസ്ത്രീയ തെളിവുകളുടേയും നൂറോളം സാക്ഷി മൊഴികളുടേയും നിരവധി രേഖകളുടേയും അടിസ്ഥാനത്തിലാണ് കുറ്റപത്രം തയ്യാറാക്കി യിരിക്കുന്നത് വടകര റൂറൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് കേസ് അന്വേഷിച്ചത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കുഴഞ്ഞു വീണു മരിച്ച താരം ആർ ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ ഗവൺമെന്റ് കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി ഇ പി ജയരാ ജൻ അറിയിച്ചു

അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി നല്കണമെങ്കിൽ പ്രത്യേക കേസ് ആയി പരിഗണിച്ച് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി വാങ്ങണമെന്നും മന്ത്രി പറഞ്ഞു കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യ സമ്മേളനം കണ്ണൂരിൽ ആരംഭിച്ചു അഖിലേന്തൃ കിസാൻ സഭ പ്രസിഡൻറ് എസ് രാമചന്ദ്രൻ പിള്ള അൽപ്പസമയത്തിനകം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

ബീച്ച് പരിസരത്ത് നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി സിറ്റി പോലീസ് കമ്മിഷണർ എ വി ജോർജ്ജ് ഫ്ളാഗ് ഓഫ് ചെയ്തു എൻ എസ് എസ് വളണ്ടിയർമാരുടേ നേതൃത്വത്തിൽ നടന്ന സ്നേഹ രാഗ സമമ്പയം പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു മദ്രസ്സകൾ ഉൾപ്പെടെ കുട്ടികൾ പഠിക്കുന്ന കെട്ടിടങ്ങൾക്ക് ആസ്ബസ്റ്റോസ് മേൽക്കൂര പാടില്ലെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമീഷൻ നിർദേശിച്ചു ആസ്ബസ്റ്റോസ് ഷീറ്റ് മേഞ്ഞ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസോ കെട്ടിട നമ്പരോ നൽകരുതെന്നും കമീഷൻ അംഗം നസീർ ചാലിയം നിർദ്ദേശം നൽകി മലപ്പുറം എടവണ്ണ മദ്രസത്തുൽ മുജാഹിദീൻ മദ്രസ്സയ്ക്കെതിരെ നൽകിയ പരാതിയിലാണ് ഉത്തരവ് സ്വകാര്യ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഇരിട്ടി തലശ്ശേരി ഇരിട്ടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസുകൾ പണിമുടക്കുന്നു ഇന്നലെ ഉച്ചയ്ക്കാണ് തലശേരിയിൽ നിന്നും ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ് ഒരു സംഘമാളുകൾ തടഞ്ഞ് കണ്ടക്ടറെ മർദ്ദിച്ചത്